കഴിഞ്ഞ നാല് വർഷത്തിനിടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ സുരക്ഷാ സ്ഥിതി ഏറെ മെച്ചപ്പെട്ടുവെന്ന് കേന്ദ്രആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ്

ലോകകപ്പ് ഫുട്ബോൾ സെമിമത്സരങ്ങൾക്ക് നാളെ തുടക്കം

ലോകത്തിലെ ഏറ്റവും വലിയ മൊബൈൽ സ്റ്റോൺ ഫാക്ടറിയാണ് സാംസങ്ങ് കമ്പനി ഉത്തർപ്രദേശിലെ നോയിഡയിൽ ആരംഭിച്ചിട്ടുള്ളത് രാജ്യത്തെ മേക് ഇൻ ഇന്ത്യ സ്കിൽ ഇന്ത്യ പദ്ധതികൾക്ക് ആക്കം കൂട്ടാൻ ഫാക്ടറി സഹായകരമാകും

രാവിലെ വിദേശകാര്യമന്ത്രി സുഷമാ സ്വരാജ് ദക്ഷിണ കൊറിയൻ പ്രസിഡന്റിനെ സന്ദർശിച്ചിരുന്നു നാല് ദിവസത്തെ സന്ദർശനാർത്ഥം ഇന്നലെയാണ് അദ്ദേഹം ന്യൂഡൽഹിയിൽ എത്തിയത്

ന്യൂഡൽഹിയിൽ ഇന്ത്യ കൊറിയ ബിസിനസ് ഫോറത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം പുതിയ ദക്ഷിണേഷ്യൻ നയമനുസരിച്ച് സാമ്പത്തിക സഹകരണത്തിനപ്പുറം മേഖലയിലെ സമാധാത്തിനാണ് രാജ്യം മുൻഗണന നല്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ദക്ഷിണകൊറിയൻ നിക്ഷേപകർക്ക് ഇന്ത്യയിൽ കൂടുതൽ സാധൃതകൾ ഉള്ളതായി കേന്ദ്രമന്ത്രി സൂരേഷ് പ്രഭു ബിസിനസ് ഫോറത്തിൽ പറഞ്ഞു

എഫ് കൃാമ്പിനു നേരെ ഇരട്ട ഗ്രനേഡ് ആക്രമണം

തിങ്കളാഴ്ച രാവിലെയാണ് ത്രാലിലെ സി ആർ

ആർക്കും പരിക്കേറ്റില്ല

വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ സമാധാന അന്തരീക്ഷം എൻഡിഎ ഗവൺമെന്റ് അധികാരത്തിലെത്തിയ ശേഷം ഏറെ പുരോഗതി കൈവരിച്ചതായും കേന്ദ്രമന്ത്രി പറഞ്ഞു

കൂടുതൽ വിവരങ്ങളുമായി കരോൾ അബ്രഹാം

ഗവൺമെന്റ് പദ്ധതികളുടെ മെച്ചപ്പെട്ട ഏകോപനത്തിനായി ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട് പദ്ധതി നടത്തിപ്പ് ഫലപ്രദമായി നിരീക്ഷിക്കാൻ ആധുനിക സാങ്കേതികവിദ്യയുടെ ഉപയോഗവും സോഷ്യൽഓഡിറ്റും അവംലബിക്കണമെന്ന് ശ്രീ

എൻഡിഎ ഗവൺമെന്റിന്റെ നാല്വർഷത്തെ ഭരണത്തിനിടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ സുരക്ഷ സ്ഥിതിഗതികൾ ഗണ്യമായി മെച്ചപ്പെട്ടിട്ടുണ്ടെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രി പറഞ്ഞു വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾക്കായി രൂപീകരിച്ച നിതി ഫോറത്തിന്റെ നിർദ്ദേശങ്ങൾ ബന്ധപ്പെട്ട വകുപ്പുകളുടെ പരിശോധനയ്ക്കും പരിഗണനയ്ക്കുമായി സമർപ്പിച്ചിട്ടുണ്ടെന്നും കേന്ദ്രആഭ്യന്തര മന്ത്രി അറിയിച്ചു ന്യൂസ് ഡസ്ക് ആകാശവാണി

ഈ സ്ഥാപനങ്ങൾക്ക് സ്വയം ഭരണാവകാശം നല്കികൊണ്ടുള്ള കേന്ദ്രമാനവവിഭവശേഷി മന്ത്രാലയത്തിന്റെ തീരുമാനം സുപ്രധാനമാണെന്ന് മന്ത്രി പ്രകാശ് ജാവദേക്കർ ട്വിറ്റർ സന്ദേശത്തിൽ പറഞ്ഞു കഴിവും ഗുണമേന്മയും മെച്ചപ്പെടുത്തി വേഗത്തിൽ ലോകനിലവാരത്തിലേക്ക് ഉയരുന്നതിന് ഈ സ്ഥാപനങ്ങളെ പദവി സഹായിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു

ന്യൂഡൽഹിയിൽ സ്മാർട്ട് സിറ്റിദൌത്യം അമൃത് പദ്ധതി എന്നിവയ്ക്ക് കീഴിലെ നിരവ ധി പദ്ധതികൾക്ക് തുടക്കമിടുകയായിരുന്നു അദ്ദേഹം

വിധി പുനപരിശോധിക്കേണ്ട യാതൊരു സാഹചര്യവും നിലവിലില്ലെന്ന് ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്ര ഉൾപ്പെട്ട ബെഞ്ച് നിരീക്ഷിച്ചു ഡൽഹി ഹൈക്കോടതി വിധിക്കെതിരായ പ്രതികളുടെ അപ്പീൽ വിശദമായി കേട്ടതാണെന്നും വധശിക്ഷക്കെതിരെയുള്ള പ്രതികളുടെ ഹർജി പുനപരിശോധിക്കുന്നതിന് മതിയായ കാരണങ്ങളില്ലെന്നും കോടതി വ്യക്തമാക്കി

എട്ടാഴ്ചയ്ക്കുള്ളിൽ കുറ്റപത്രം പൂർണ്ണമായും സമർപ്പിക്കാൻ കോടതി ഉത്തരവിട്ടിട്ടുണ്ട്

സീസണിലെ കനത്ത മഴയ്ക്കാണ് ഇന്ന് മുംബൈ നഗരം സാക്ഷ്യം വഹിച്ചത് ക്ട്റെയ്യിൽ റോഡ് ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ് കുർള സിറ്റ്യോൺ ദാദർ മേഖലകളിൽ വെള്ളപ്പൊക്കം അനുഭവപ്പെടുന്ന്തായി ആകാശവാണി ലേഖകൻ റിപ്പോർട്ട് ചെയ്യുന്നു

ജമ്മുകാശ്മീരിൽ നിന്ന് ബെയ്സ്ക്യാമ്പിലേക്ക് പോകുകയായിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്

മൃതദേഹം ഇന്ന് ഉച്ചകഴിഞ്ഞ് പാലാ രാമപുരം സെന്റ് അഗസ്റ്റിൻ പള്ളി സെമിത്തേരിയിൽ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിച്ചു

ആരോപണവിധേയനായ നടൻ ദിലീപ് ഇപ്പോൾ സംഘടനയ്ക്ക് പുറത്തു തന്നെയാണ് സംഘടനയിലേക്ക് ഇല്ലെന്ന് അദ്ദേഹം വൃക്തമാക്കിയിട്ടുണ്ടെന്നും ശ്രീ മോഹൻലാൽ കൊച്ചിയിൽ പ്രസ് ക്ലബിന്റെ മീറ്റ് ദ പ്രസ് പരിപാടിയിൽ പറഞ്ഞു

ഇതുവരെ എട്ട് കുട്ടികളെയാണ് രക്ഷിച്ചത് ഇനി നാല് കുട്ടികളെയും പരിശീലകനെയും രക്ഷിക്കാനുണ്ട് രക്ഷാ ദൌതൃം പുരോഗമിക്കുകയാണ് ഇന്ന് രാവിലെയാണ് രക്ഷാപ്രവർത്തനം പുനരാംരംഭിച്ചത്

ആദ്യമത്സരത്തിൽ ഫ്രാൻസ് ബൽജിയത്തെ നേരിടും

സെമി പ്രതീക്ഷകളെ കുറിച്ച് മലയാളി ഫുട്ബോൾ താരം സി

വിനീത് ആകാശവാണിയോട്

കൂടുതൽ വിവരങ്ങളുമായി കരോൾ അബ്രഹാം

എന്നാൽ കെയ്ന് ശക്തമായ വെല്ലുവിളി ഉയർത്തി ബെൽജിയം താരം റൊമേലു ലുക്കാക്കു നാല് ഗോളുകളുമായി തൊട്ടുപിന്നിൽ തന്നെയാണ് ഫ്രഞ്ച് താരങ്ങളായ അന്റോണിയോ ഗ്രീസ്മാനും എംബാപ്പയും മൂന്നു ഗോളുകൾ നേടി പട്ടികയിൽ മൂന്നാം സ്ഥാനത്താണ്